ഉത്തർ പ്രദേശിലെ വിന്ധ്യാചൽ മേഖലയിൽ ഗ്രാമീണ കുടിവെള്ള വിതരണ പദ്ധതികളുടെ നിർമാണോദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു

തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാ ഡി എം

ജെ

സഖൃം തുടരാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചെന്നൈയിൽ നടന്ന ചർച്ചയിൽ ധാരണ

എടിപി ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഡൊമിനിക് തീം മെദ്വദേവിനെ നേരിടും

ഉത്തർ പ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരിപാടിയിൽ സന്നിഹിതനായിരുന്നു

കടുത്ത കുടിവെള്ള ക്ഷാമം ന്റേരിടുന്ന് വിന്ധ്യാചൽ പ്രദേശത്തിന് പദ്ധതി ആശ്വസമാകും

കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ് വോയിസ് രാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് കോവിഡ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

കോവിടനന്തര ലോകത്തിൽ നാല് അടിസ്ഥാന ഘടകങ്ങൾ ഉൾപ്പെടുത്തി ഒരു പുതിയ ആഗോള സൂചിക തയ്യാറാക്കേതു് നൈപുണ്യസമ്പന്നരെ സൃഷ്ടിക്കുക സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലേക്കും സാങ്കേതിക വിദ്യ എത്തിക്കുക സർക്കാരിലും ഭരണത്തിലും സുതാര്യത ഉറപ്പാക്കുക ഭൂമിയുടെ ചുമതലക്കാരെന്ന നിലയിൽ ശ്രദ്ധയോടെ പെരുമാറുക എന്നിവയാകണം ആ നാല് ഘടകങ്ങൾ

കഴിഞ്ഞ പതിറ്റാണ്ടുകൾ മൂലധനത്തിനും സാമ്പത്തിനുമാണ് പ്രാധാന്യം നല്കിയിരുന്നതെങ്കിൽ നൈപുണ്യ വികസനത്തിനും നൈപുണ്യ വൈവിധ്യത്തിനും പ്രാധാന്യം നൽകേ സമയമായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭരണ രംഗത്ത് സുതാരൃത വർധിപ്പിക്കുന്നത് വെല്ലുവിളികളെ ആത്മവിശ്വസത്തോടെ നേരിടാൻ ജനങ്ങൾക്ക് പ്രചോദനമാകുമെന്നൂം അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

എ

എം

കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷ്ഠിയുടെ ചെന്നൈ സന്ദർശനത്തിലാണ് ഇരു പാർട്ടികളും ഒന്നിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനമെടുത്തത് സീറ്റ് പങ്കിടൽ അടക്കമുള്ള വിഷയങ്ങളിൽ ഷായുടെ നേതൃത്വത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി ഉപമുഖ്യമന്ത്രി ഒ

എം

ട്രെയിനുകൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിൽ ഉപരോധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി പ്രതിഷേധക്കാർ പറഞ്ഞു പഞ്ചാബിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനം എല്ലാ ട്രെയിൻ സർവീസുകളും പുനസ്ഥാപിക്കണമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു ചരക്കുകളും പാസഞ്ചർ ട്രെയിൻ സർവീസുകളും പുനരാരംഭിക്കുന്നതിന് പഞ്ചാബ് സർക്കാരിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചതായി റെയിൽവേ മന്ത്രാലയം അറിയിച്ചു

ആഗോളതാപനം പരിമിതപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളെ ലോകം അംഗീകരിച്ചിട്ടു്

ലാൽ ബഹാദൂർ ശാസ്ത്രി ദ്ദേശീയ പുരസ്കാരം വെർചലായി സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭീകരവാദത്തെ സഹായിക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വർദ്ധിച്ചു വരുന്ന ഭീകരപ്രവർത്തനങ്ങളിൽ ഉപരാഷ്ട്രപതി ആശങ്ക അറിയിച്ചു

ഇംഗ്ലിൽ വീഡിയോ കോൺഫറൻസിലൂടെ നടന്ന വാതായൻ യു

നിഷാങ്ക് പുരസ് കാരം സ്വീകരിച്ചത്

ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയ യുദ്ധ സ്മാരകത്തിൽ രാജ്യത്തിനായി ജീവൻ ബലികഴിച്ച ധീര യോദ്ധാക്കൾക്ക് ആദരവ് അർപ്പിച്ചു

ജനറൽ രാജീവ് ചോപ്ര എന്നിവർ യുദ്ധ സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു

അഹമ്മദാബാദ് സൂററ്റ് വഡോദര രാജ്കോട്ട് എന്നീ നഗരങ്ങളിലെ രാത്രികാലങ്ങളിലും വാരാന്ത്യത്തിലുമുള്ള കർഫ്യു കർക്കശമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു രാജസ്ഥാനിൽ രോഗവ്യാപനം ഏറ്റവും ഉയർന്ന എട്ട് ജില്ലകളിൽ രാത്രികാല കർഫ്യു ഏർപ്പെടുത്തി

നാളെ വൈകിട്ട് മൂന്നിന് മുൻപ് നാമനിർദേശ പത്രിക പിൻവലിക്കാം അതിനുശേഷം സ്ഥാനാർഥികൾക്ക് ചിഹ്നം അനുവദിക്കും നാളെ തന്നെ അന്തിമ സ്ഥാനാർഥിപ്പട്ടിക തയാറാകും

ഇന്നലെ നടന്ന ആവേശകരമായ പ്പോരാട്ട്ത്തിൽ ഒന്നാം നമ്പർ താരം സെർബിയയുടെ നൊവാക് ജോർക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയാണ് ഡൊമിനിക് തീം ഫൈനല്ലിൽ കടന്നത്

ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈയെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരു ഗോളിന് പരാജയപ്പെടുത്തിയിരുന്നു